കേരളത്തിലെ പ്രളയബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വ്യോമമാർഗ്ഗം സന്ദർശിക്കും രക്ഷാ പ്രവർത്തനത്തിനായി കൂടുതൽ സൈനൃത്തെ വിനിയോഗിക്കാൻ ദേശീയ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനം

തുടക്കം

ജക്കാർത്തയിൽ ഇന്ന് തുടങ്ങും

ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റിലെ മൂന്നാം മൽസരം ഇന്ന് ആരംഭിക്കും

പ്രളയക്കെടുതികൾ ചെങ്ങന്നൂർ ചാലക്കുടി പ്രദേശങ്ങളിൽ ദൂരിതാശ്വാസ രക്ഷാ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

പൊലീസും ഫയർഫോഴ്സും കേന്ദ്രത്തോടൊപ്പം രക്ഷാപ്രവർത്തനങ്ങളിൽ ജാഗരൂകരാണ് ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് ഹെലികോപ്റ്റർ ബോട്ട് എന്നിവവഴി ഭക്ഷണം എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു മഴ തുടരുന്നത് രക്ഷാ പ്രവർത്തനം ദുഷ്ക്കരമാക്കുന്നുണ്ട്

സി എം സി കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ ഇന്നലെ രണ്ടാം തവണ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തതായി ആഭ്യന്തരമന്ത്രാലയ വക്താവ് അറിയിച്ചു കേരളത്തിന് ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നത് ഉറപ്പാക്കാൻ ക്യാബിനറ്റ് സെക്രട്ടറി പി

സിൻഹ അദ്ധ്യക്ഷനായ യോഗം നിർദ്ദേശിച്ചു മൂന്ന് സേനാ തലവൻമാർ ആഭ്യന്തര പ്രതിരോധ സെക്രട്ടറിമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു കേരള ചീഫ് സെക്രട്ടറിയും മറ്റ് ഉദ്യോഗസ്ഥരും വീഡിയോ കോൺഫറൻസിങിലൂടെ യോഗത്തിൽ പങ്കെടുത്തു

ശുദ്ധജലം ആഹാര പായ്ക്കറ്റുകൾ പാൽപ്പൊടി എന്നിവ ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കൾ ലഭ്യമാക്കാനും തീരുമാനിച്ചു

എം സി ഇന്ന് സ്ഥിതിഗതികൾ വീണ്ടും അവലോകനം ചെയ്യും

മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവീൺ കുമാർ ജഗന്നാഥ് പോർട്ട് ലൂയിസിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വിദേശകാര്യ മന്ത്രി സുഷമ സ്വരാജും ചില കേന്ദ്രമന്ത്രിമാരും സമ്മേളനത്തിൽ പങ്കെടുക്കും ഹിന്ദി ലോകവും ഇന്ത്യൻ സംസ്കാരവും എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം മൂന്നു ദിവസത്തെ സമ്മേളനത്തിൽ പ്രമേയത്തിന് കീഴിലുള്ള എട്ട് ഉപവിഷയങ്ങളിൽ ഇന്ത്യയിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ചർച്ചകൾ നടത്തും സമ്മേളനത്തിന്റെ വിജയത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു

എമിറേറ്റ്സ് റെഡ് ക്രസന്റ് അദ്ധ്യക്ഷനായ കമ്മിറ്റിയിൽ യു എ

അവിടുത്തെ പ്രമുഖരായ ഇന്ത്യൻ വംശജരുടെ സഹായവും കമ്മിറ്റി ആവശ്യപ്പെടും

വാജ്പേയിയുടെ കർമ്മഭൂമി യുപിയിൽ ആയിരുന്നുവെന്നും സംസ്ഥാനത്തെ പല പ്രദേശങ്ങളുമായും അദ്ദേഹത്തിന് ആത്മബന്ധം ഉണ്ടായിരുന്നെന്നും സംസ്ഥാന ഗവൺമെന്റിന്റെ വക്താവ് അറിയിച്ചു

ഇതിനുള്ള തീയതി തീരുമാനിച്ചിട്ടില്ല

കേന്ദ്രഗവൺമെന്റിന്റെ പകുതിയിലേറെ നികുതിയും ലഭിച്ചതായി കേന്ദ്ര പ്രതൃക്ഷ നികുതി ബോർഡ് മെമ്പർ ഷബ്രി ഭട്ടസാലി ഇന്നലെ ഗുവാഹട്ടിയിൽ അറിയിച്ചു

ഇന്നലെ ദേശീയ അസംബ്ലിയുടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇമ്രാൻഖാനെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തിരുന്നു

ആരംഭച്ചടങ്ങുകൾ വൈകുന്നേരം നടക്കും മൽസരങ്ങൾ നാളെ ആരംഭിക്കും ഹാൻഡ്ബോൾ ഫുട്ബോൾ ഉൾപ്പെടെ ചില മൽസരങ്ങൾ കഴിഞ്ഞയാഴ്ച ആരംഭിച്ചിരുന്നു

എട്ട് മത്സ്യത്തൊഴിലാളികളും രണ്ട് സൈനികരുമാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്